രണ്ടാം ദിവസത്തിൽ

മഹാരാഷ്ട്രയിൽ നാളെ മുതൽ രാത്രികാല കർഫ്യു

ബംഗബന്ധു ഷേക്ക് മൂജിബൂർ റഹുമാന്റെ ജന്മസ്ഥലമായ തുങ്കിപ്പാറ അദ്ദേഹം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേക്ക് ഹസീനയ്ക്കൊപ്പം സന്ദർശിച്ചു വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ വോയ്സ് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈശ്വരിപൂരിലുളള ജശോരേശ്വരി കാളി ക്ഷേത്രവും ബംഗബന്ധു ഷേക്ക് മൂജിബൂർ റഹുമാന്റെ ജന്മസ്ഥലമായ തുംഗിപുരയിലെ ചരിത്രസ്മാരകവും സന്ദർശിച്ചു അതിനുശേഷം മതുവാ സമുദായു ീസ്ഥാപകനും ആത്മീയ ഗുരുവുമായ ഹരിചന്ദ് താക്കൂറിന്റെ ജന്മസ്യ്ലമായ ഒറാക്കാണ്ടിയിൽ സമുദായാംഗങ്ങൾ നൽകുന്ന സ്പ്രീകരണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശ്രേഷ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേക്ക് ഹസീനയുമായി അദ്ദേഹർ ഔദ്യോഗിക ചർച്ച നടത്തും ചർച്ചയിൽ നിരവധി കരാറ്റുകളിലും ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പു വയ്ക്കുക ്നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുന്ന് ശ്രീ പ്രക്രേന്ദ്രമോദി വൈകിട്ട് ബംഗ്ലാദേശ് പ്രസിഡന്റ് അബ്ദുൾ ഹാ്മിദിനെ സന്ദർശിച്ച ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇത് സംബന്ധിച്ച് ജനങ്ങളിൽ ബോധവൽകരണം നടത്താനും സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല ആവശ്യപ്പെട്ടു ആഘോഷങ്ങളോടനുബന്ധിച്ച് ആൾക്കൂട്ടം ് നിയന്ത്രിക്കുപ്പോൾ ആവശ്യമെങ്കിൽ പ്രാദേശിക് നിയന്ത്രണം ഏർപ്പെടുത്താനും നേരത്തെ കേന്ദ്ര ആരോഗൃ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു

രോഗവൃാപനം വർദ്ധിക്കുന്നത് തടയാൻ ആൾക്കൂട്ടം ഒഴിവാക്കാനും മുൻകരുതൽ മാർഗ്ഗങ്ങൾ കർശനമായി പാലിക്കാനും മഹാരാഷ്ട്ര സർക്കാർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമ്പൂർണ ലോക്ഡൌൺ ഒഴിവാക്കണമെങ്കിൽ ജനങ്ങൾ സർക്കാരുമായി പൂർണമായും സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു

ഡോക്ടർമാരുടെ നിർദ്ദേശ പ്രകാരം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് താൻ വീട്ടിൽ കോറന്റിനിൽ കഴിയുകയാണെന്ന് സച്ചിൻ ട്വിറ്ററിൽ കുറിച്ചു

അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് നഗര കേന്ദ്രീകൃത കർമ പദ്ധതിയ്ക്കുളള ധാരണാപത്രത്തിൽ അദ്ദേഹം ഒപ്പുവച്ചു

ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് കത്തയച്ചതായും ശ്രീ ജാവദേക്കർ വ്യക്തമാക്കി

അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ മാഞ്ചുലി നിയോജകമണ്ഡലത്തിൽ നിന്നും അസമിലെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് റിബുൻ ബോറ ഗോഹ്പൂരിൽ നിന്നും ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു

ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടേയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

യുവാക്കൾ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഊർജ്ജസ്വലരായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

പ്രമുഖ പാർട്ടികളുടെയും ് മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്ത് സജീവമാണ്

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

നദ്ദ കണ്ണൂരിൽ പ്രചാരണത്തിൽ പങ്കെടുക്കുകയാണ് റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തും നാളെ വിവിധ ജില്ലകളിൽ അദ്ദേഹം എൻ ഡി എ

കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തൃത്താലയിൽ ഇന്ന് ബി ജെ പി പ്രചാരണ യോഗത്തിലും റോഡ് ഷോയിലും പങ്കെടുക്കും

ഡി എഫിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളത്ത് പ്രചാരണം നടത്തുകയാണ്

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറ്റോർഅംഗം പ്രകാശ് കാരാട്ടും പ്രചാരണത്തിനായി കേരളത്തിലുണ്ട് പ്രചാരണത്തിന് നാളെ കോൺഗ്രസ്റ്റ് നേതാവ് സൽമാൻ ഖുർഷിദ് എത്തും

ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അസം പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലെയും മാധ്യമങ്ങൾ അടക്കമുള്ളവ ഈ കാലയളവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമാണ് കമ്മീഷൻ നിരോധിച്ചത്

കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോള താപനത്തിന്റെയും കെടുതികളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനാണ് ഭൌമ മണിക്കൂർ ആചരണം ലോകത്തെ ഏഴായിരം നഗരങ്ങൾ ഇന്ന് ഭൌമ മണിക്കൂർ ആചരണത്തിന്റെ ഭാഗമാകും പ്രാദേശിക സമയം രാത്രി എട്ടര മുതൽ ഒമ്പതര ്വരെ വൈദ്യൂതി വിളക്കുകൾ അണച്ചും കമ്പ്യൂട്ടർ ടെലിവിഷൻ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതെയും ഊർജോപയോഗം പരമാവധി കുറച്ചാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത്

എൻ കാലാവസ്ഥഉച്ചകോടിക്ക് മുൻപുളള സുപ്രധാന യോഗമാണിത്

ദിനാചരണത്തിന്റെ ഭാഗമായി രംഗഭൂമി ഇന്ത്യൻ തിയേറ്ററുകളുടെ ഉത്സവം എന്ന പേരിൽ ഫിലിം ഡിവിഷൻ ദിദിന് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു